നേതൃയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

കേരളത്തിൽ കോവീഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ ന് കുറവ്

രാജ്യത്തെ കോവിഡ് മുക്തിനിരക്കിൽ വർദ്ധന

ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ

എസ്

എസ് വാരം പുതിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് അഞ്ചുദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യാപാരം നിക്ഷേപം തന്ത്രപ്രധാന ഊർജ സഹകരണം ആരോഗ്യം സാങ്കേതികവിദ്യ എന്നിവയിലുള്ള പങ്കാളിത്തം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും ഇതിനുപുറമേ ആഗോള ഉത്പാദക കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ ശേഷി ഇന്ത്യൻ വാതക വിപണിയുടെ സാധൃതകൾ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയെ കൂടുതൽ വ്യാപാര സൌഹൃദം ആക്കൽ ബ്ലഹിരാകാശ സാങ്കേതിക രംഗത്തെ സാധ്യതകളും വെല്ലുവിളികളൂർ ഇൻഡോ പസഫിക് സാമ്പത്തിക വിഷയങ്ങൾ പൊതുജന്റാ്റ്റ്റോഗ്യ രംഗത്തെ നൂതന ആശയങ്ങൾ എന്നിവയും ഉച്ചക്ട്ട്ട്ടിയിൽ ചർച്ചയാകും നേരത്തെ അമേരിക്കൻ വൈസ്പ്രസീഡന്റ് മൈക്ക് പെൻസ് കേന്ദ്രമന്ത്രിമാരായ പിയൂഷ് ്ട്രോയൽ എസ്

ഷാങ്ഹായ് അംഗരാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി റഷ്യയിൽ എത്തിയതായിരുന്നു അദ്ദേഹം ആഭ്യന്തര സുരക്ഷ തീവ്രവാദം ഭീകരവാദം എന്നിവ ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗരാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകും തീവ്രവാദത്തിനെതിരെയുള്ള സി

ഉഭയകക്ഷി സഹകരണവും പരസ്പര താത്പര്യമുള്ള വിഷയങ്ങളും റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് ശ്രീ

മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ മേധാവി അവലോകനം ചെയ്യുമെന്ന് കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു രണ്ട് ദിവസത്തെ സന്ദർശന വേളയിൽ നിയന്ത്രണരേഖയിലെ കരസേന മുന്നൊരുക്കങ്ങളും ശ്രീ നരവാനെ വിലയിരുത്തും

ഇന്ത്യയുടെ പരമാധിക്കാർത്തിനും പ്രതിരോധത്തിനും സുരക്ഷയ്ക്കും ഹാനികരമെന്ന ക്ടൂരണ്ത്താലാണ് ഇലക്ട്രോണിക്സ് ഐ ടി

ഇന്ത്യയുടെ സൈബർ മേഖ്ലൂയിൽ സുരക്ഷയും പരമാധികാരവും ഉറപ്പുവരുത്തുന്ന ഈ ക്ട്ടപ്ടി ഇന്റർനെറ്റ് മൊബൈൽ ഉപയോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതാണ് ഇത്തരം ആപ്പുകൾ ഉപയോക്താക്കളുടെ വൃക്തിവിവരങ്ങൾ ചോർത്താനായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതികളുടെ പശ് ചാത്തലത്തിലാണ് നടപടി

മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ അതിവേഗം രോഗികളിൽ എത്തിക്കാനും അതുവഴി കുറഞ്ഞ മരണനിരക്ക് കൈവരിക്കാനും സാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി

രണ്ടു ലക്ഷത്തോളം രോഗികളാണ് ചികിൽസയുള്ളത്

രോഗവ്യാപനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ആന്ധ്രപ്രദേശിൽ ഒരു ലക്ഷത്തോളം പേരാണ് ചികിൽസയിലുള്ളത് മൂന്നരലക്ഷത്തോളം പേർക്കാണ് ഇതുവരെ ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്

ന്യൂസ് ഡസ്ക്

കണ്ടെയ്മെന്റ് സോണുകൾക്ക് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ മാത്രമെ പരീക്ഷ നടത്താവൂ എന്ന് മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ടെയ്മെന്റ് സോണുകളിൽ നിന്നുള്ള പരീക്ഷാർത്ഥികളെയും നടത്തിപ്പുകാരെയും ഒഴിവാക്കണം

പരീക്ഷാ നടത്തിപ്പുകാരും പരീക്ഷാർത്ഥികളും രോഗമില്ലെന്ന് സത്യവാങ്മൂലം നൽകണം പരീക്ഷക്ക് മുമ്പും ശേഷവും കേന്ദ്രങ്ങൾ അണുവിമുക്തമാക്കണമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ വൃക്തമാക്കുന്നു

രാജ്യത്തെ സിവിൽ സർവീസ് രംഗത്തിന്റെ കാര്യക്ഷമത വർധിപ്പിക്കാനും പരിഷ്ക്കരണത്തിനും ലക്ഷ്യമിട്ടുള്ള കർമയോഗി മിഷന് ഇന്നലെയാണ് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് സർക്കാരിന്റെ ഏറ്റവും വലിയ മാനവവിഭവശേഷി പദ്ധതിയാകും കർമയോഗിയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

സിവിൽ സർവീസ് ഉദ്ദേർഗ്സ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പൃദ്ധ്തിയിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ പ്രക്ട്ടിന് ്മെച്ചപ്പെടുത്താൻ സാധിക്കും തീരുമാനത്തിന് പ്രധാനമന്ത്രി തൃരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുന്നതായും രാജ്യത്ത് ഒരു പുത്തൻക്ക്കൊഴിൽ സംസ്കാരത്തിന്റെ തുടക്കമായിരിക്കും ഇത്തെന്നും ശ്രീ അമിത് ഷാ ട്വിറ്ററിൽ കുറിച്ചു

കശ്മീരി ദോഗ്രി ഹിന്ദി എന്നിവയെ കശ്മിരിന്റെ ഔദ്യോഗിക ഭാഷകളാക്കുന്നതിലൂടെ ജനങ്ങളിൽ സമഭാവന നിലനിർത്താനാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു

ശങ്കർ തിരുവനന്തപുരത്ത് അന്തരിച്ചു

തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതു ദർശനത്തിന് വെച്ച ഭൌതികശരീരത്തിൽ സഹപ്രവർത്തകർ അന്തിമോപചാരം അർപ്പിച്ചു

എയും മുതിർന്ന ജെ ഡി എസ് നേതാവുമായ അപ്പാജി ഗൌഡ കോവിഡ് ബാധിച്ചു മരിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു ഷിമോഗയിലെ ഭദ്രാവതി നിയമസഭാ മുണ്ട്ട്ടല്ത്തിൽ നിന്നുമാണ് അപ്പാജി ഗൌഡ എം

എ ആയത്

ജി എസ് സംവിധാനത്തിലൂടെ അയോധ്യാ വികസന അതോറിറ്റിക്ക് ട്രസ്റ്റ് നൽകിയത്

പ്രളയം ഏറെ നാശം വിതച്ച ദർഭാംഗ് ഗോപാൽഗഞ്ച് മുസഫർപൂർ ജില്ലകൾ സംഘം ഇന്ന് സന്ദർശിക്കും

സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുമായും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായും കേന്ദ്രസംഘം കൂടിക്കാഴ്ച നടത്തും

കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്തു ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് മുതലാണ് മാത്തേരാനിൽ സഞ്ചാരികൾക്കു വിലക്ക് ഏർപ്പെടുത്തിയത് മിഷൻ ബിഗിൻ എഗെയിനിന്റെ ഭാഗമായി തുറന്ന മാത്തേരാനിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായും പാലിക്കണമെന്ന് മേയർ പ്രേരണ സാവന്ത് വിനോദ സഞ്ചാരികളോട് അഭ്യർഥിച്ചു

കോവിഡ മഹാമാരിയുടെ ഷ്ത്രാ്ത്തലത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് കാണികളും മാധ്യമപ്രി്പ്പർത്ത്കരും അടക്കമുള്ളവരുടെ താപനില പരിശോധിച്ചശേഷമാണ് തീയേറ്ററിൽ പ്രവേശനം അനുവദിക്കുന്നത്